നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഗവൺമെന്റ് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി

ജഗൻമോഹൻ റെഡ്ഡി ്ഇന്ന് ചുമതലയേൽക്കും

റോബർട്ട് വാദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരായി

തുടർച്ചയായ രണ്ടാം തവണയാണ് ശ്രീ മോദി പ്രധാനമന്ത്രിപദത്തിലെത്തുന്നത് വൈകിട്ട് ഏഴുമണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രിയ്ക്കും മറ്റ് കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും അഞ്ചുവർഷത്തെ ഭരണത്തിനു ശേഷം വീണ്ടും പ്രധാനമന്ത്രിയായി തിരുഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ബി ജെ

ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രക്ടന്റമ്ന്തിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒട്ടേറെ രാഷ്ട്രത്തല്പ്മാ്ടാരും നയതന്ത്ര പ്രതിനിധികളും മുതിർന്ന രാഷ്ട്രീയ ദ്നേത്യർക്കളും മറ്റും സാക്ഷികളാകും അയൽപക്കം ആദ്യ്ക്ക്മന്ന ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായി ബിംസ്റ്റെക്ക് രാജ്യങ്ങളുടെ തലവന്മാരേയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക കിർഗിസ് റിപ്പബ്ലിക് മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും മൌറീഷ്യസ് നേപ്പാൾ ഭൂട്ടാൻ പ്രധാനമന്ത്രിമാരും തായ്ലന്റിന്റെ പ്രത്യേക പ്രതിനിധിയും ചടങ്ങിൽ സംബന്ധിക്കും

നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിലേയ്ക്ക് ക്ഷണിച്ചിരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി യു പി എ അധ്യക്ഷ സോണിയഗാന്ധി തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരാകും വൈകിട്ട് നാല് മണി മുതൽ ഒൻപത് മണി വരെ ദേശീയ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട റോഡുകൾ അടച്ചിടുമെന്നും അതിനാൽ ഇതുവഴി വാഹനങ്ങളിലൂടെയും കാൽനടയായും ഉള്ള യാത്ര ഒഴിവാക്കണമെന്നും ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ് വോയ്സ് ദേശീയ സുരക്ഷയ്ക്കാണ് തൃൻ മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി ടിറ്റർ ന്യൂന്ദേശത്തിൽ എഴുതി ഇന്നു വൈകുന്നേരം നടക്കുന്ന സത്യപ്രതിജ്ഞ്ാ ചടങ്ങിനു മുന്നോടിയായി ശ്രീ മോദി ന്യൂഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

നേരത്തെ അദ്ദേഹം രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കും ശ്രീ മോദി സദൈവ് അടൽ സമാധിയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

ഓരോ നിമിഷവും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ദീപ്തസ്മരണകൾ തനിക്കും ബി ജെ പിക്കും കരുത്തു പകരുന്നതായി ശ്രീ മോദി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു അടൽജിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പുരോഗതിയിലേക്ക് നയിക്കാൻ തന്റെ ഗവൺമെന്റ് നല്ല ഭരണം കാഴ്ചവയ്ക്കാൻ കഠിന പ്രയത്നം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളിതിനാൽ തന്നെ പുതിയ ഗവൺമെന്റിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് നേരത്തേ ശ്രീ

ചികിത്സയ്ക്കായി തനിക്ക് സമയം ആവശ്യമാണെന്നും അതിനാൽ പുതിയ ഗവൺമെന്റിൽ ഒരു ഉത്തരവാദിത്തവും ഏറ്റെടുക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും ശ്രീ ജയ്റ്റ്ലി കത്തിൽ വിശദമാക്കിയിരുന്നു

എൽ എ മുനിറുൾ ഇസ്താം ബി ജെ

തൃണമൂൽ നേതാക്കളായ ഗദാധാർ ഹസ്റ മൊഹമ്മദ് ആസിഫ് ഇക്ബാൽ നിമായി ദാസ് എന്നിവരും ബി ജെ

പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വാർഗിയയുടെ സാന്നിധ്യത്തിലാണ് ഇവർ ബി ജെ

ശ്രീമതി മമത ബാനർജിയുടെ നിലപാടുകളോട് വിയോജിപ്പുള്ളതിനാലാണ് തൃണമൂൽ കോൺഗ്രസ് വിട്ടതെന്ന് ഇവർ പറഞ്ഞു പശ്ചിമബംഗാളിലെ മൂന്ന് എം

എ മാരും അമ്പതോളം കൌൺസിലർമാരും കഴിഞ്ഞ ദിവസം ബി ജെ

അദ്ദേഹത്തിന്റെ വിദേശയാത്രയെയിട്ടു ഏജൻസി എതിർത്തിരുന്നു

കാസിരംഗ നാഷണൽ പാർക്ക് അധികൃതരാണ് പോലീസിന്റെയും വന്യജീവി കുറ്റകൃത്യ നിയന്ത്രണ ബ്യൂറോയുടെയും സഹായത്തോടെ ഇന്നലെ വൈകിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തത് ഒരു തോക്കും നാല് റൌണ്ട് തിരകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്

അതുവരെ ഡാമൻ ഡ്യൂവിനൊപ്പം ഗോവ ക്ട്രേന്ദ്രണ പ്രദേശമായിരുന്നു

ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് ലണ്ടനിലെ ഓവലിൽ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം

ലോക കപ്പ് ക്രിക്കറ്റ് യോഗൃതാ മത്സരത്തിലെ ചാമ്പ്യനായ അഫ്ഗാനിസ്ഥാനുമായുള്ള മത്സരം ബ്രിസ്റ്റളിൽ വച്ചാണ്

ആകാശവാണി

പാരൂീസിൽ നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഉക്രേനിയൻ സ്ഖ്യത്തെയാണ് ഇവർ നേരിടുക

ഇവരുടെ മത്സരങ്ങൾ നാളെ നടക്കും

അടുത്ത മൂന്നു ദിവസത്തേക്ക് സ്ഥിതി തുടരുമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പു നൽകി മധ്യപ്രദേശ് ഹരിയാന ത്ധാർഖണ്ഡ് ഉത്തർപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലും അടുത്ത രണ്ടുമൂന്നു ദിവസം കടുത്ത ചൂട് തുടരാൻ സാധ്യതയുണ്ട്

ചിദംബരത്തിന്റെയും കാർത്തിക് ചിദംബരത്തിന്റെയും അറസ്റ്റ് ഡൽഹി കോടതി ആഗസ്റ്റ് ഒന്നുവരെ നീട്ടി

ബി

നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ പി ചിദംബരത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാഴ്ചത്തേക്ക് സമയം നീട്ടി നൽകിയിരുന്നു